പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

അടച്ചുപൂട്ടലിലേക്ക്

യുണൈറ്റഡ് ബംഗളുരു എഫ്

രണ്ടാമത് ദേശീയ യുവജന പാർലമെന്റ് മേള സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ യുവാക്കൾ മുന്നോട്ടു വരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു സത്യസന്ധതയും പ്രവർത്തന മികവുമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അനിവാരൃ ഘടകങ്ങൾ മികച്ച രാഷ്ട്രീയ പ്രവർത്തകരാകാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി കുടുംബവാഴ്ചയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അതിനെ വേരോടെ പിഴുതെറിയണമെന്നും പറഞ്ഞു യുവാക്കളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ൂഅവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി ഒരു ആവ്യാക്സ് പൃവസ്ഥ ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം കേന്ദ്ര സ്ട്രർക്കാർിന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം മികച്ചു വ്യക്തികളുടെ വികാസത്തിനും അതിലൂടെ രാജ്യത്തിന്റെ പ്പീകൃസനത്തിനും ഊന്നൽ നൽകുന്നതാണെന്ന് പ്രധാനുമന്ത്രി അറിയിച്ചു

സമാപന സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗ് വഴി അദ്ദേഹം അഭിസംബോധന ചെയ്തു ഒന്നാം സ്ഥാനം നേടിയ ഉത്തർപ്രദേശിൽ നിന്നുള്ള മുദിത മിശ്രയുടെ ഇന്തൃ വീണ്ടും ഉയിർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രസംഗം പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ജേതാക്കളുടെയും അവസാന പാനലിൽ എത്തിയവരുടെയും പ്രസംഗങ്ങളും ശ്രീ മോദി ട്വിറ്ററിൽ പങ്കുവച്ചു

അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീകര പ്രവർത്തനങ്ങൾ വരുത്തുന്ന ഭീഷണികൾ എന്ന വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാസമിതി യുടെ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീവ്രവാദ ഭീകരതയുടെ ഭീഷണിയെ നേരിടാൻ എട്ട് സുപ്രധാന ഘടകങ്ങൾ ഉള്ള കർമ്മപദ്ധതിയും യോഗത്തിൽ ഡോ

ഭീകരതയെ ചെറുത്തു നിൽക്കുന്നതിൽ സുരക്ഷാ സമിതി വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ തുടരണമെന്ന് വിദേശകാരൃ മന്ത്രി അഭിപ്രായപ്പെട്ടു

ഏറ്റവും ക്ടുറഞ്ഞ് പ്രീമിയം നിരക്കിൽ രാജ്യമെമ്പാടുമുള്ള കർഷ്കരുടെ വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്

നികുതി വെട്ടിപ്പ് പരാതികൾക്കായി പൊതുജനങ്ങൾക്ക് ഇ ഫയലിംഗ് ലിങ്കിൽ സമർപ്പിക്കാമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു പാനോ ആധാറോ ഉള്ളവർക്കാണ് ഈ സൌകര്യമുള്ളത് വൺ ടൈം പാസ്വേഡ് മുഖാന്തിരമാണ് ഈ സൌകരൃം ഒരുക്കുന്നത് പരാതി സമർപ്പിച്ചതിന് ശേഷം പരാതിക്കാർക്ക് യുണിക് നമ്പരും നൽകുകയും തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പിലെ വെബ്സൈറ്റിൽ അറിയാമെന്നും മന്ത്രാലയം അറിയിക്കുന്നു

ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കാണിതെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയം വൃക്തമാക്കി

ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം ഒരു കോടി കവിഞ്ഞു

സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള കൊവിഷീൽഡ് വാക്സിനുകളാണ് സംസ്ഥാനത്ത് എത്തുന്നത് ഇത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിലെ പ്രാദേശിക വാക്സിൻ സ്റ്റോറുകളിൽ സംഭരിക്കും

എല്ലാ കേന്ദ്രങ്ങളിലും വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുളളതായും ആരോഗ്യമന്ത്രി പറഞ്ഞു

അഞ്ച് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു

വാക്സിൻ ഡോസുകൾ ഇന്ന് സംസ്ഥാന്ത്ത് എത്തിച്ചേരും

രാജ്യത്തുടനീളം ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള പരിപാടികളാണ് വിവിധ മന്ത്രാലയങ്ങൾ സംഘടിപ്പിക്കുന്നത്

സായുധ സേനാംഗങ്ങളും പോലീസും പരേഡിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ലൈവ് ബാൻഡ് കച്ചേരികൾ നടത്താൻ തയ്യാറാവുകയാണ്

വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ഹ്രസ്വ ചലച്ചിത്ര മത്സരവും ദേശീയ കായിക വകുപ്പ് ഓൺലൈൻ വെബിനാറുകളും സംഘടിപ്പിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നഗരങ്ങളിലൂടെ യുള്ള യാത്രകൾക്കും കർശന്റ് വീല്ലക്കേർപ്പെടുത്തിയിട്ടുണ്ട്

യുദ്ധ്യകാലാടി സ്ഥാനത്തിൽ കർശനമായ കോവിഡ് പ്രതിരോധ ന്ട്പടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചൈന

എസ് ക്യാപിറ്റോളിൽ നടന്ന ആക്രമണത്തെ ക്കുറിച്ച് പുതിയ വിവരങ്ങളുമായി യു എസ് നീതിന്യായ വകുപ്പും എഫ് ബി

ബി ഐ യുടെ വാഷിങ്ടൺ ഓഫീസിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റീവൻ

എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളുരു എഫ്

ഇതോടെ പോയിന്റ് പട്ടികയിൽ ബംഗളുരു ആറാമതും നോർത്ത് ഈസ്റ്റ് ഏഴാമതുമാണ്

ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട്